വരാതെ ഓൺലൈനായി പിഴ ഒടുക്കാനുള്ള സംവിധാനം ഡൽഹിയിൽ നിലവിൽ വന്നു

ഓർക്കുക ആഹ്ലാദിക്കുക സ്മരണ പുതുക്കുക എന്നതാണ് ഈ വർഷത്തെ കാർഗിൽ ദിനാചരണത്തിന്റെ സന്ദേശം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി പ്രതിരോധമന്ത്രി എന്നിവരുടെ നേതൃത്വത്തിൽ ധീര രക്തസാക്ഷികൾക്ക് ഇന്നലെ ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു

ബിജെപി ആസ്ഥാനത്ത് കാർഗിൽ വിജയദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിർത്തികളിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ സൈനികർ നൽകുന്ന സേവനങ്ങളെപ്പറ്റിയും രാജ്യസുരക്ഷയ്ക്ക് അവർ നൽകുന്ന സംഭാവനകളെക്കുറിച്ചും ഗവൺമെന്റ് കത്തിലൂടെ വ്യക്തമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു നരേന്ദ്രമോദി ഭരണകൂടത്തിന് കീഴിൽ രാജ്യം സുരക്ഷിതമാണെന്ന് ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് ജെ പി നദ്ദ പറഞ്ഞു

കോൺഗ്രസ് എസ്

എം സി ബി

പി ആർ

ഡി

നിയമനിർമാണം നടപ്പിലാക്കുന്നതിൽ കൈക്കൊണ്ടുവരുന്ന നിലവിലുളള കീഴ്വഴക്കങ്ങളിൽനിന്നും ആരോഗൃപരമായ പാരമ്പരൃങ്ങളിൽ നിന്നുമുളള വിടവാങ്ങലാണ് ഇത് എന്ന് കത്തിൽ അവർ വ്യക്തമാക്കി

എല്ലാത്തരം ഭീകര പ്രവർത്തനങ്ങളെയും അപലപിക്കുന്നതായി ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ചേർന്ന ബ്രിക്സ് അംഗരാഷ്ട്രങ്ങളിലെ വിദേശകാരൃ മന്ത്രിമാരുടെ യോഗം വിലയിരുത്തി

ശക്തമായ അന്താരാഷ്ട്ര നിയമ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനാ കീഴിൽ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് കൂട്ടായ്മ ആവശ്യപ്പെട്ടു ബ്രസീൽ റഷ്യ ഇന്തൃ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവരാണ് ബ്രിക്സ് കൂട്ടായ്മയിലുള്ളത്

നാലാം തവണ മുഖ്യമന്ത്രിയായ യെദ്യൂരപ്പയ്ക്ക് കഴിഞ്ഞ മൂന്നു തവണയും കാലാവധി പൂർത്തിയാക്കാനായിരുന്നില്ല

മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തതിന് പിന്നാലെ കർഷകർക്കായി വലിയ പ്രഖ്യാപനങ്ങൾ ശ്രീ

പ്രധാനൻമന്ത്രി കിസാൻ യോജനയ്ക്ക് പുറമെ തന്റെ ഗവൺമെന്റ് നാലായിരം രൂപവീതം കർഷകരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുമെന്നാണ് പ്രധാന പ്രഖ്യാപനം

ജെ

മൂന്ന് എം എൽ എ മാരെ സ്പീക്കർ അയോഗൃരാക്കിയിരുന്നു

ഡി എസ് എം എൽ എ മാരുടെ കാര്യത്തിൽ സ്പീക്കർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല അതേസമയം അയോഗ്യരാക്കപ്പെട്ട മൂന്ന് എംഎൽഎമാരും സ്പീക്കറിന്റെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്

അതേസമയം മുംബൈയിൽ കഴിയുന്നു വിമത എംഎൽഎമാരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ്പൂശമർ തുടരുകയാണ് എന്നാൾ കോൺഗ്രസ് ദൾ നേതാക്കളുമുടി കൂടിക്കാഴ്ച നടത്താൻ വിമതർ തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് ആകാശ്വാണി

ട്രാഫിക്ക് ചെല്ലാനുകൾ ഓൺലൈനായി അടയ്ക്കുന്നതിനുളള വെബ് പോർട്ടൽ ഡൽഹി ജില്ലാ കോടതി ഉദ്ഘാടനം ചെയ്തു തിസ് ഹസാരി കോടതിയിൽ സുപ്രീംകോടതി മുൻ ജഡ്ജി മദൻ

ഡൽഹി ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നടപ്പാക്കുന്ന ആദ്യ പോർട്ടലാണ് ഇത്

വിവിധ മേഖലകളിൽ മൂന്ന് ധാർണ്ട്രൂപത്രങ്ങളിലും കരാറുകളിലും ഇരുരാജ്യങ്ങൾ തമ്മീൽ ഒപ്പുവയ്ക്കുമെന്ന് ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

വികളും ഇന്തൃ മൊസാംബിക്കിന് കൈമമാറുന്ന ചടങ്ങും അരങ്ങേറും

സ്പെഷ്യൽ ഒളിംപിക്സ് അന്താരാഷ്ട്ര ഫുട്ബോൾ ചാമ്പ്യൻ ഷിപ്പ് ചെയർമാൻ ഡോ

അടുത്തമാസം മൂന്ന് മുതൽ ആറുവരെ ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ചാമ്പൃഷിപ്പ് നടക്കുക

ഈ വർഷത്തെ ഏറ്റവും വലിയ അഭയാർഥി ദുരന്തമായിരിക്കും ഇതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അഭയാർഥികാര്യ ഏജൻസി അറിയിച്ചു

മെഡിറ്ററേനിയൻ സമുദ്ര മേഖലയിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ അഭയാർഥി ദുരന്തമാണ് ഇതെന്ന് അഭയാർഥികൾക്കായുള്ള ഐക്യരാഷ്ട്ര സംഘടനാ മേധാവി ഫിലിപ്പോ ഗ്രാന്റി ട്വീറ്റ് ചെയ്തു

ആഭ്യന്തരയുദ്ധം രൂക്ഷമായ ആഫ്രിക്കയിൽ നിന്നും മധ്യപൂർവ്വേഷ്യയിൽ നിന്നും യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്

മിക്കപ്പോഴും വലിയ ദുരന്തത്തിലാണ് ഇത് കലാശിക്കുന്നത്

റഷ്യയിൽ പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് മാധ്യമം ഈ നടപടിയുടെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാകണമെന്ന് റഷ്യൻ വിദേശകാരൃ മന്ത്രാലയം പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി പിഴ ചുമത്തുന്ന നടപടി സെൻസർഷിപ്പാണെന്നും പ്രസ്താവനയിൽ പറയുന്നു

പങ്കുവയ്ക്കുന്ന സ്വപ്നങ്ങൾ ശോഭനഭാവി എന്ന ആശയം മുൻ നിർത്തിയുള്ള സമ്മേളനത്തിൽ സാംസ്കാരിക പരിപാടിയും ഉണ്ടാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രിയായ ശേഷം ഇതാദ്യമായാണ് ശ്രീ മോദി ഹൂസ്റ്റൺ സന്ദർശിക്കുന്നത്

തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഇന്ന് വൈകിട്ടാണ് ചടങ്ങ്

ഗവൺമെന്റിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെ

കടമീടാക്കൽ പാപ്പരത്ത് നിയമം അനുസരിച്ച് ഡെറ്റ് റിക്കവറി ട്രൈബ്യൂണൽ മുഖേനയുള്ള നടപടിയാണ് വേണ്ടതെന്ന് കോടതി വ്യക്തമാക്കി അതേസമയം സർഫാസി നിയമപ്രകാരമുള്ള നടപടികൾക്ക് ഈ വിധി തടസമല്ലെന്നും കോടതി വ്യക്തമാക്കി

പ്രഫഷനൽ താരങ്ങളായി കൃത്തരാഖണ്ഡിൽ നിന്നുമുളള അമിത് താപ്പ ഒന്നീടും സ്ഥാനവും ആശിഷ് റാവത്ത് രണ്ടാം സ്ഥാനസ്കൂം നേടി ചാംപ്യൻഷിപ് നാളെ സമാപിക്കും

നാളെ രാവിലെ ഒൻപത് മുതൽ തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും ഉച്ചയ്ക്കുശേഷം മാറമേക്കാവ് ശാന്തിഘട്ടിലാണ് സംസ്കാരം